സംസ്ഥാനത്ത് എലിപ്പനിരോഗബാധയെ കൂറിച്ച് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ കെ ശ്ലൈജ്

പികെ ശ്രശി എം എൽഎക്കെതിരായ പരാതിയിൽ ദേശീയ വനിതാകമ്മീഷൻ കേസെടുത്തു സാഫ്കപ്പ് ഫുട്ബോളിന്റെ ആദ്യമത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ തോൽപിച്ചു പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന കേരളത്തിന് കൂടു തൽ കേന്ദ്രസഹായം എത്തിക്കുമെന്ന് ധനമന്ത്രി അരുൺജെയ്റ്റ്ലി അറിയിച്ചു പ്രകൃതി ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പതി നാലാം ധനകാര്യ കമ്മീഷന്റെ മാർഗനിർദേശമനുസരിച്ചാണ് കേന്ദ്ര ഗവ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം വൃക്തമാക്കി തിരുവനന്ത പുരത്ത് സംഘടിപ്പിച്ച ഇന്ത്യ ഫോർ കേരള കോൺക്ലേവിൽ വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കുകയായിരുന്നു അരുൺ ജെയ്റ്റ്ലി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നവകേരള നിർമിതിക്കാണ് ഊന്നൽ നൽകുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ക്ലെയിമുകൾ തീർപ്പാക്കാൻ ഇൻഷൂറൻസ് കമ്പനികൾക്കും വായ്പകൾ നൽകാൻ ബാങ്കുകൾക്കും നിർദേശം നൽകിയിട്ടുണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയായാലുടൻ കൂടുതൽ സഹായം നൽകും എന്നാൽ സംസ്ഥാനത്തെ മന്ത്രിമാർ വാർത്താ സമ്മേളനം വിളിച്ചല്ല സഹായം ചോദിക്കേണ്ടതെന്നും രേഖാമൂലം സമർപ്പിക്കുന്ന ഏത് ആവശ്യവും കേന്ദ്രം പരിഗ്ഗണിക്കുമെന്നും ജെയ്റ്റ്ലി പറഞ്ഞു ഗവർണർ പി സദാശിവം കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നത് ആഭ്യന്തര കാര ണങ്ങൾ കൊണ്ടല്ലെന്നും അന്താരാഷ്ട്ര കാർണങ്ങളാലാണെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വൃക്തമാക്കി ലോകത്തെ മറ്റു കറൻസി കളെ അപേക്ഷിച്ച് രൂപ ശക്തമായി നിലയിലാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു പെട്രോൾ ഡീസൽ എന്നിവ്യുടെ എക്സൈസ് തീരുവ കുറ യ്ക്കാനാവില്ലെന്ന് ധന്യമന്ത്രി വൃക്തമാക്കി സംസ്ഥാനത്ത് എലിപ്പനിരോഗബാധയെ കുറിച്ച് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു എലിപ്പനി സ്ഥിരീകരിച്ച ഒരാ്ൾ തിരുവനന്തപുരത്തും എലിപ്പനിയാണെന്ന് സംശ യിക്കുന്ന ഒരും മരണം പത്തനംതിട്ടയിലും ഇന്നലെ ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു

പ്രളയത്തിന് ശേഷം വെള്ളം ഇറങ്ങുന്ന സമയത്ത് എലിപ്പനി പടർന്ന് പിടിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് നടപടി സ്വീകരിച്ചതുകൊ ണ്ടാണ് മരണം കുറയ്ക്കാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു

വെളളം മലീനമാകുന്നതിന്റെ ഭാഗമായി മലേറിയ മഞ്ഞപ്പിത്തം കോളറ തുടങ്ങിയ പകർച്ചവ്യാധിയുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഇതിനെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ജാഗ്രത പുലർത്തു ന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചില സ്ഥലങ്ങളിൽ ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്തതായി ശൈലജ അറിയിച്ചു കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ പത്ത്പേർക്ക് കൂടി എലിപ്പനി സ്ഥിരീകരിച്ചു

കോഴിക്കോട് ജില്ലയിൽ വരും ദിവ്സുങ്ങളിൽ ഡെങ്കിപ്പനി മല മ്പനി തുടങ്ങിയ കൊതുകുജന്യ രോഗ്ങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

ജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ഡിഎംഒ പറഞ്ഞു

ഇതിൽ എട്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു

രണ്ട് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു കൊല്ലം ജില്ലയിൽ ഒൻപത് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു

എലിപ്പനി രോഗബാധയ്ക്ക് എതിരെ സഞ്ചരിക്കുന്ന ബോധവത്ക്കരണ പരിപാടി ജില്ലയിൽ ഇന്ന് പര്യടനം ആരംഭിക്കും

ഹർഷ്കുമാർ ഭൻവാല മുഖ്യമന്ത്രി പിണറായി വിജയനയച്ച കത്തിലറിയിച്ചു

പ്രധാനമന്ത്രി സുർക്ഷാ ബീമ പദ്ധതിയിൽ അപകട ഇൻഷൂ റൻസ് തുക രണ്ട് ലക്ഷമായി നിജപ്പെടുത്തിയതായി ജെയ്റ്റ്ലി പറ ഞ്ഞു

സംസ്ഥാ നത്തെ ഉൾനാടൻ ജലഗതാഗത വികസനത്തിന്റെ ഭാഗമായി സ്വദേശി ദർശൻ പദ്ധതിക്ക് കീഴിലാണ് തുക അനുവദിച്ചത് ഈ പദ്ധതി വഴി കണ്ണൂർ ജില്ലയിലെ വളപട്ടണം കുപ്പം പുഴ കളിൽ മലബാറി പാചകക്രമം തെയ്യം കണ്ടൽക്കാട് എന്നിവ പ്രമേ യമാക്കി മൂന്ന് ജലയാത്രകളാണ് നടപ്പാക്കുന്നത് ഷൊർണൂർ എം എൽഎ പി കെ ശശിക്കെതിരായ പരാതി യിൽ ദേശീയ വനിതാകമ്മീഷൻ കേസെടുത്തു

ദേശീയവനിതാകമ്മീഷൻ അധ്യക്ഷ രേഖാശർമ നേരിട്ടെത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും സംസ്ഥാനത്തെ നാല് സ്വാശ്രയ മെഡിക്കൽ കോളജുകളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കൌൺസിൽ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും

ചീഫ് ജസ്റ്റിസ് ദീപക്മിശ്ര അധ്യ ക്ഷനായ അഞ്ചംഗ ഭരണഘട്നാബ്ഞ്ചാണ് കേസ് പരിഗണിച്ച ത് ധാക്കെയിൽ സാഫ് കപ്പ് ഫുട്ബോളിന്റെ ആദ്യമത്സരത്തിൽ ഇന്ത്യക്ക് ജയം ശ്രീലങ്ക്യെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് മലപ്പുറത്തെ ആഷിക് കുരുണ്യ നാണ് ആദ്യഗ്ഗോൾ നേടിയത്

ഞായറാഴ്ച മാലദ്ധീപിനെതിരെയാണ് ഇന്ത്യയുടെ രണ്ടാം മത്സരം ഒരിക്കലും ചേരാത്തവരെന്ന് രാഷ്ട്രീയ വിദഗ് ധർ വിധിയെഴുതിയ ഘടകകക്ഷികളുമായിചേർന്ന് മാതൃകാ ഭരണം നടത്തിയ രാഷ്ട്ര നേതാവാണ് അടൽ ബിഹാരി വാജ്പേയിയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു മലപ്പുറത്ത് അടൽ ബിഹാരി വാജ്പേയ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സംസ്ഥാനം മഹാപ്രളയത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ചുമതല കൈമാറാതെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് സ്വന്തം മന്ത്രിസ ഭയിലെ സഹപ്രവർത്തകരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്ന് കെ പി സിസി പ്രസിഡന്റ് എം എം ഹസ്സൻ പറഞ്ഞു പത്തനംതിട്ട യിൽ ജില്ലാ കോൺഗ്രസ് കമ്മറ്റി ജനറൽബോഡിയോഗം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂട്ടനാട്ടിലെ ചമ്പക്കുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ആമ്പുലൻസിൽ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് രോഗി മരിച്ചു

നഴ്സിന് ഗുരുതരമായി പൊളളലേറ്റു

ആശുപത്രി കെട്ടിടവും ഫാർമസിയും മൂന്ന് ബൈക്കും ഒരു ഓട്ടോ ടാക്സിയും ഭാഗികമായി കത്തി നശിച്ചു

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ തകരാറിലായ പാലക്കാട് പട്ടാമ്പി പാലം പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു

ആപൽഘട്ടത്തിൽ ഒന്നിച്ച് നിൽക്കാനുള്ള കേരളീയ മനസ്സ് മാതൃകാപരമാണെന്ന് കോഴിക്കോട്ട് ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ യോഗം അഭിപ്രായപ്പെട്ടു ചെമ്പരിക്ക ഖാസിയായിരുന്ന സിഎം അബ്ദുല്ല മുസ്ലിയാരുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിൽ ഈയിടെയുണ്ടായ പ്രകൃതിക്ഷോഭ ത്തോടനുബന്ധിച്ച് വ്യാപകമായുണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മൂലം സംഭവിച്ച ഭൌമ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് ജിയോളജിക്കൽ സർവ്വെ ഉദ്യോഗസ്ഥർ ജില്ലയിലെത്തി വ്യാപകമായ തോതിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായ അടിമാലി മാങ്കുളം മൂന്നാർ മേഖലകളിലും കട്ടപ്പന കുമളി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലുമുണ്ടായ നാശനഷ്ട ങ്ങളെക്കുറിച്ച് കലക്ടർ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു

കോഴിക്കോട് മുൻ ജില്ലാകല ക്ടറും പശ്ചിമബംഗാൾ ന്യൂനപക്ഷ ക്ഷേമ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായ ഡോ പിബി സലിമിന്റെ നേതൃത്വത്തിലാണ് പശ്ചി മബംഗാളിലെ വിവിധ ജില്ലകളിൽ നിന്ന് മലയാളി അസോസിയേ ഷനുകൾ ശേഖരിച്ച സാധനങ്ങൾ തൃര്തിരിച്ച് എത്തിച്ചത് ഡൽഹി നിയമസഭയിലെ നാല് ബിജെപി എംഎൽഎമാർ ഒരു മാസത്തെ ശമ്പളം കേരളത്തില്ലെ പ്രളയദുരിതാശ്ചാസത്തിലേക്ക് സംഭാവന നൽകി

ആദ്യഘട്ടത്തിൽ ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കാണ് പണം വിതരണം ചെയ്തത്

ദുരന്തത്തിനിരയായവർക്ക് സഹായ വിതരണത്തിൽ വീഴ്ച വരുത്തുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റ് അടക്കം അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കല ക്ടർ അറിയിച്ചു

പ്രളയദുരിതത്തിൽ നഷ്ടപ്പെട്ടതും കേടുപാടുകൾ സംഭവിച്ചതു മായ മുഴുവൻ പാസ്പോർട്ടുകൾക്കും പ്പക്രം പുതിയത് നൽകുമെന്ന് ആന്റോ ആന്റണി എം പി പറഞ്ഞു